ആദ്യ വിമാനം അബുദാബിയിലേക്ക് യാത്ര തിരിച്ചു

കിരീടത്തിനായി ഇഞ്ചോടിഞ്ച് ഫ്യോര്യാടി പാലക്കാടും കോഴിക്കോടും അന്താരാഷ്ട്ര ചലച്ചിത്ര മേള്യുടെ മൂന്നാം ദിനമായ ഇന്ന് ഒട ന് ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് മു്ന്നിലെത്തും

പ്രവേശിച്ചു

കണ്ണൂർ അന്താരാഷ്ട്ര വിമാന രാജ്യത്തിന് സമർപ്പിച്ച് ത്താവളം സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി വിമാനത്താവള ഉദ്ഘാടന വിശേഷങ്ങളുമായി ആകാശവാണി കണ്ണൂർ പ്രതിനിധി കെ

ശശിധരൻ

ഒറ്റപ്പാലം നഗരസഭയുടെ പുതിയ ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി നവകേരള നിർമ്മാണത്തിൽ ആരെയും ഒഴിച്ചുനിർത്താൻ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നില്ലെന്നും മന്ത്രി വൃക്തമാക്കി

കേസുകളുടെ കാര്യക്ഷമമായ അന്വേഷണത്തിനായി എക്സൈസ് വകുപ്പിൽ ക്രൈം ബ്രാഞ്ച് രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്നതായും എല്ലാ ജില്ലകളി ലും എക്സൈസ് ടവർ നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞതായും മന്ത്രി അറിയിച്ചു കണ്ണൂർ കൂത്തുപറമ്പ് എക്സൈസ് കോംപ്ലക്സ് ശിലാസ് ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി യോഗത്തിൽ മന്ത്രി കെ

പരിപ്പാട്ടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലത്ത് കേരള പ്രദ്ദേശ്പിഗാന്ധി യുവമണ്ഡലം ചെയർമാൻ നിർവ്വഹിച്ചു

സാങ്കേതിക തകരാറുമൂലമാണ് പ്രദർശനങ്ങൾ മുടങ്ങിയതെന്നും പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്നും അധികൃതർ അറിയിച്ചു മുതിർന്ന പൌരൻമാരുടെയും പ്രതിനിധികളുടെയും അഭൃർത്ഥനമാനിച്ച് ഏർപ്പെടുത്തിയ കൂപ്പൺ സമ്പ്രദായം മേളയിൽ നിന്ന് ഒഴിവാക്കിയ തായി അക്കാഡമി സെക്രട്ടറി മഹേഷ് പഞ്ചു അറിയിച്ചു റിസർവേഷൻ കഴിഞ്ഞുള്ള സീറ്റുകൾക്കായാണ് ഈ സംവിധാനം ഏർപ്പെടുത്തിയിരുന്നത്

എസ് യു പ്രവർത്തകരേയും മാർച്ച മ്പ്രവർത്തകനേയും മർദ്ദിച്ച പോലീസ് നടപടിയെ കെ

സി സി പ്രിസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അപലപിച്ചു

ജലീൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചാസ നിധിയിലേക്ക് കൈമാറിയ ഒരു രൂപ പോലും ദുർവിനിയോഗം ചെയ്യപ്പെടില്ലെന്നും തങ്ങൾ നൽകിയ പണം അർഹതപ്പെട്ടവരുടെ കൈയ്യിൽ എത്തുമെന്ന ജനങ്ങളുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കുമെന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കെ

പെരിന്തൽമണ്ണയിൽ കെയർ ഹോം ഭവന നിർമ്മാണ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു കൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി

കൂടുതൽ വിവരങ്ങളുമായി കലോൽസവ വേദിയിൽ നിന്ന് ആകാശവാണി പ്രതിനിധി ർവികുമാർ

നേതൃത്വത്തിൽ പുനർമൂല്യനിർണയം നടത്തി

റോഡ് പണിക്കാവശ്യമായ സ്ഥലം സ്വമേധയാ എല്ലാവരും നൽകണമെന്നും എന്നാൽ ആരെയും നിർബന്ധപൂർവം ഒഴിപ്പിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു

എഞ്ചിനീയറിംഗ് കോളേജുകളുടെ എണ്ണം കൂടുന്നുണ്ടെങ്കിലും മുപ്പതിനായിരത്തോളം സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും മന്ത്രി പറഞ്ഞു

ഇന്ത്യയ്ക്കായി മുഹമ്മദ് ഷമി ആർ അശ്വിൻ എന്നിവർ രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തി

അവസാന മിനിട്ടുകളിലെ മികച്ച പ്രകടനുമാണ് ഇന്ത്യയ്ക്ക് കാർട്ടർ ഉറപ്പാക്കിത്

സുധാകരൻ പാലങ്ങളുടെ നിർമ്മാണത്തിൽ കേരള ഗവൺമെന്റ് ചരിത്രം സൃഷ്ടിക്കുകയാണെന്നും ് സംസ്ഥാനത്ത് ഇതുവരെ നൂറിലേറെ പാലങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കിയെന്നും മന്ത്രി ജി

സി

സ്ത്രീകൾക്കെതിരായ ആക്രമണങ്ങൾക്ക് കാലം മാപ്പ് നൽകില്ലെന്ന് മുന്നറിയിപ്പ് നൽകിയ മന്ത്രി എല്ലാ മേഖലകളിലും സ്ത്രീസമത്വം ഉണ്ടാവണമെന്നതാണ് ഗവൺമെന്റ് നയമെന്നും വൃക്തമാക്കി

ശൈലജ പുഴകൾ വീണ്ടെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ വരും തലമുറയ്ക്ക് വേണ്ടിയാണെന്ന് മന്ത്രി കെ

മാലിന്യ നിക്ഷേപ ത്തെ തുടർന്ന് നശിച്ച പുഴകളെ പുനർജ്ജീവിപ്പിക്കുന്ന പ്രവർത്ത നങ്ങൾ കേരളത്തിൽ നടന്നു വരികയാണ് കക്ഷിരാഷ്ട്രീയത്തിന് അതീ തമായ പിന്തുണ ഈ ശ്രമങ്ങൾക്ക് വേണമെന്നും മന്ത്രി പറഞ്ഞു

ഹരിതകേരളം മിഷന്റെ രണ്ടാം വാർഷികത്തോടുനുബന്ധിച്ച് പാണ്ടിവയൽ തോടിന്റെ പുനരുജ്ജീവനത്തിനായി സംഘടിപ്പിച്ച ഏകദിന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി